ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ

ആവശ്യപ്പെടുന്ന ഗത്ത്ഗൃത സൌകരൃം ഏർപ്പെടുത്തുന്ന കാരൃം ഗൌരവമായി പരിഗണീക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്

പ്രവാസികളെ നാട്ടിലെത്തിക്കുന്ന വന്ദേഭാരത് മിഷൻ ഇന്നും തുടരും കേരളത്തിലേക്ക് ഇന്ന് മൂന്ന് വിമാനങ്ങൾ എത്തും

കേരളത്തിൽ ഇന്ന് സമ്പൂർണ ലോക്ഡൌൺ

കൽക്കരി ധാതുക്കൾ പ്രതിരോധ ഉൽപാദനം വ്യോമയാനം ബഹിരാകാശ്ത് വൈദ്യുത വിതരണ കമ്പനികൾ ആണവോർജ്ജം എന്നീ എട്ട് മേഖ്ലകളിൽ ഘടനാപരമായ മാറ്റം ഉണ്ടാകുമെന്ന് ശ്രീമതി നിർമല്പിക്കുടിതാരാമൻ പറഞ്ഞു

കൽക്കരിമേഖലയിൽ സ്വകാര്യ വൽക്കരണത്തിന് തുടക്കം കുറിക്കും പൊതു സ്വകാര്യ പങ്കാളിത്തതോടെ ആറ് എയർപോർട്ടുകൾ വികസിപ്പിക്കാനുള്ള ലേല നടപടികൾ ഉടൻ ആരംഭിക്കും

കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ വൈദ്യുത വിതരണ കമ്പനികൾ സ്വകാര്യവത്കരിക്കാനും നീക്കമുണ്ട്

എന്നാൽ ഐ എസ് ആർ ഒ യ്ക്കായിരിക്കും പ്രവർത്തനങ്ങളുടെ നിയന്ത്രണമെന്ന് മന്ത്രി അറിയിച്ചു

പുതിയ നടപടികളും പരിഷ്കാരങ്ങളും രാജ്യത്ത് കൂടുതൽ വാണിജ്യ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സാമ്പത്തിക പരിഷ്കരണത്തിന് വഴി തെളിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു

ഇത് പിന്നീട് രണ്ടുതവണ ദീർഘിപ്പിക്കുകയായിരുന്നു

ലോക്ഡൌൺ നാലാംഘട്ടം സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളും വിശദാംശങ്ങളും കേന്ദ്രം ഇന്ന് പുറപ്പെടുവിക്കും

എസ് പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു കേന്ദ്രആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി കത്തു നൽകി

വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചീഫ്ട് സെക്രട്ടറിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കൊറോണ വ്യാപനത്തെ പ്രതിരോധിക്കാൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടിയെ ശ്രീ ജിതേന്ദ്രസിംഗ് അഭിനന്ദിച്ചു

ഇതിനായി വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി സംസ്ഥാന നോഡൽ ഓഫീസർ വഴി റെയിവേയ്ക്ക് അപേക്ഷ നൽകാൻ രാജ്യത്തെ ജില്ലാ കളക്ടർമാരോടും റെയിൽവേമന്ത്രി പീയുഷ് ഗോയൽ ആവശ്യപ്പെട്ടു

പൂർണമായും ഈ സർവീസുകൾ നടത്തിയാൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കുടിയേറ്റക്കാരെയും സ്വന്തം നാട്ടിൽ എത്തിക്കാനാവും

സാമൂഹ്യഅകലം പാലിക്കൽ മുഖാവരണം ഉപോയഗിക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തി പരിസര ശുചിത്വം തുടങ്ങിയവയെപറ്റി നഗരങ്ങളോട് ചേർന്ന ചേരിപ്രദേശങ്ങളിലുള്ളവരെ ബോധവൽക്കരിക്കണം പൊതുകിണറുകൾ ശൌചാലയങ്ങൾ പൊതുവിതരണകേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും സാമൂഹ്യഅകലം ഉറപ്പുവരുത്തണമെന്നും മാർഗനിർദേശത്തിൽ പറയുന്നു

രണ്ടാം ഘട്ടത്തിൽ ഇന്ന് മൂന്ന് പ്രിമാനങ്ങൾ യു എ

മറ്റൊരു വിമാനം അബുദാബിയിൽ നിന്നും കൊച്ചിയിലെത്തും

മറ്റ് ജില്ലകളിലുള്ള യാത്രക്കാരെ കൂടാതെ തമിഴ്നാട് മാഹി സ്വദേശികളായ ഓരോരുത്തരും തിരിച്ചെത്തിയ സംഘത്തിലുണ്ടായിരുന്നു ഇവരിൽ രോഗലക്ഷണം കണ്ടെത്തിയ നാല് പേരെ കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചു

എസ് ജലാശ്വ ഇന്ന് ഉച്ചുയോടെ കൊച്ചിയിലെത്തും

ചരക്ക് നീക്കം ആരോഗ്യമേഖല അടിയന്തിര സർക്കാർ ഡ്യൂട്ടി മാധ്യമങ്ങൾ മറ്റ് അത്യാവശ്യ സർവീസുകൾ എന്നിവയ്ക്ക് മാത്രം യാത്രാനുമതി

ശക്തമാകാനിടയുള്ള കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

മീ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

നാളെ മുതൽ ഒഡീഷ ആന്ധപ്രദേശ് പ്ലശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശങ്ങളിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

കൂടിയേറ്റതൊഴിലാളികൾ വഴിയോരക്കച്ചവടക്കാർ കർഷകർ ഇടത്തരക്കാർ തുടങ്ങിയവർക്ക് ആത്മ നിർഭർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു

സംസ്ഥാനത്തിന്റേയ്ക് ്കേന്ദ്രത്തിന്റേയോ റേഷൻ കാർഡില്ലാത്ത എട്ടുകോടി കുടിയേറ്റ് തൊഴിലാളികൾക്ക് അഞ്ച് കിലോഗ്രാം അരി അല്ലെങ്കിൽ ് ഗോതമ്പ് ഒരുകിലോ കടല തുടങ്ങിയവ അടുത്ത രണ്ടുമാസത്തേക്ക് പ്പിച്ചതിയിലൂടെ സൌജന്യമായി ലഭിക്കും

കോട്ടൺ സിൽക്ക് വൂൾ തുടങ്ങിയവയിൽ നിർമിക്കുന്നതും മെഡിക്കൽ ആവശ്യങ്ങൾക്കല്ലാത്തതുമായ മാസ്കുകൾ കയറ്റി അയയ്ക്കാം